പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയവിനിമയം ഇന്ന്

ആദ്യക്ഷരം കുറിച്ചു കോവിഡ് മാന്ദ്രി്ട്ണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ

ഒരുക്കുന്ന സ്മാരകത്തിന്റെ നിർമ്മാണ പ്രവർത്തനം മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

റൈഡേഴ്സ് കിങ്സ് ഇലവൻ പഞ്ചാബുമായി ഏറ്റുമുട്ടും

അസംസ്കൃത എണ്ണ ഉപഭോഗത്തിൽ ലോകത്ത് മൂന്നാം സ്ഥാനത്തും ദ്രവീകൃത പ്രകൃതി വാതകം ഇറക്കുമതി ചെയ്യുന്നതിൽ നാലാമതുമാണ് ഇന്തൃ ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ എണ്ണ കമ്പനി മേധാവികളെ അറിയിക്കാനും ഈ രംഗത്ത് കൂടുതൽ ശക്തമായ സാന്നിധൃമാകാനും ലക്ഷ്യമിട്ടാണ് നിതി ആയോഗും എണ്ണ പ്രകൃതി വാതക മന്ത്രാലയവും ചേർന്ന് പരിപാട്ടി സ്ക്ലെടിപ്പിക്കുന്നത്

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വീടുകളിലും ചെറിയ കൂട്ടായ്മകളിലുമാണ് ഇത്തവണ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നത്

അതേ സമയം എഴുത്തച്ഛന്റെ കളരിയിൽ പുസ്തക പൂജയ്ക്കും പ്രാർഥനയ്ക്കും അവസരം നൽകി

ടി

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി മോഹൻ

സാംസ്കാരിക സമുച്ചയത്തിന്റെ നിർമാണോദ്ഘാടനം ഇ ന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും

താഴത്തെ നിലയിൽ രണ്ട് ഹാളുകളിലായി മ്യൂസിയം ഓഫീസ്ക് ഓപ്പൺ എയർ തിയറ്റർ സ്റ്റേജ് എന്നിവയുണ്ടാകും രണ്ടാമത്തെ നിലയിൽ ലൈബ്രറ്റി കഫെറ്റീരിയ എന്നിവയും മൂന്നാമത്തെ നിലയിൽ മൂന്ന് ബ്രോർഡ് റൂമുകളുമാണുണ്ടാവുക കൂടാതെ പ്രേംനസീറിന്റെ മുഴുവൻ സീനിമകളുടെയും ശേഖരം ചലച്ചിത്ര പഠനത്തിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനം താമസ സൌകര്യം എന്നിവയുമുണ്ടാകും രണ്ട് കോടിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത്

ഹൈക്കോടതി വിധിയ്ക്കെതിരെ സംസ്ഥാന സർക്കാരാണ് ഹർജി നൽകിയത് കോട്ടയം സിമന്റ്സ് ഇൻട്രോ പൊതുമേഖലാ സ്ഥാപനമായ കോട്ടയം നാട്ടകത്തെ ട്രാവൻകൂർ സിമന്റ്സിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം രണ്ടു ദശാബ്ദമായി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ വീണ്ടെടുപ്പിന് വിശദമായ പഠനത്തിന് ശേഷമാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്

കേരളത്തിൽ കോഴിക്കോട്ടേക്ക് മാത്രമായിരിക്കും സർവ്വീസുകൾ

തൊടുപുഴ സ്റ്റേഷനിലെ എസ്ഐ പി കെ രാജുവാണ് മരിച്ചത്

യൂറോപ്പിലും അമേരിക്കയിലും രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്

ഓഹരി ഓഹരി വിപണിയിൽ നഷ്ടത്തോടെ തുടക്കം

രാമകൃഷ്ണൻ ഷീലോഡ്ജ് സംരംഭം കേരളത്തിലുടനീളമുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ പറഞ്ഞു